ബ്രിക്സിറ്റ് പിൻവാങ്ങൽ പ്രക്രിയ വൈകിപ്പിക്കാൻ ന് യൂറോപ്യൻ കൌൺസിൽ അനുമതി നൽകും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കും

കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്തുനിന്നും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നിന്നും ജനവിധി തേടും മറ്റ് സ്ഥാനാർത്ഥികൾ കാസർഗോഡ് രവീശതന്ത്രി കണ്ണൂർ സി

പത്മനാഭൻ വടകര വി കെ സജീവൻ കോഴിക്കോട് കെ

പ്രകാശ് ബാബു മലപ്പുറം വി ഉണ്ണിക്കൃഷ്ണൻ പൊന്നാനി വി ടി രമ പാലക്കാട് സി കൃഷ്ണകുമാർ ചാലക്കുടി എ

രാധാകൃഷ്ണൻ കൊല്ലം കെ വി ബാബു ആലപ്പുഴ കെ എസ് രാധാകൃഷ്ണൻ ആറ്റിങ്ങൽ ശോഭ സുരേന്ദ്രൻ

സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരും കോൺഗ്രസ് പ്രഖ്യാപിച്ചു വിശാഖപട്ടണം ലോക്സഭാ സീറ്റിൽ രമണകുമാരി പെദദ വിജയവാഡയിൽ എൻ നരസിംഹ റാവു നന്ദ്യാൽ സീറ്റീൽ ജെ

നരസിംഹ യാദവ് എന്നിവരാണ് മൽസരിക്കുന്നത്

ജെ

തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുളള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു

ജെ

പാർട്ടിയുടെ നിലവിലെ ഏക പാർലമെന്റുംഗം മുൻ മന്ത്രി ബന്ദാരു ദത്താത്രേയ ഇത്തവണ സെക്കന്തരാബാദ് മണ്ഡല ത്തിൽ മൽസരിക്കില്ല

ജെ

മുൻ സംസ്ഥാന പ്രസിഡന്റ് ജി

ജെ

എം എൽ എ രാമചന്ദ്രൻ റാവു മൽക്കജ്ഗിരി സീറ്റിൽ മൽസരിക്കും

സിറ്റിംഗ് എംപി മാരെല്ലാം മൽസരത്തിനിറങ്ങും

എ ഗവൺമെന്റിന്റെ കാലത്ത് ഹിന്ദു ഭീകരവാദ സിദ്ധാന്തം അവതരിപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു

എ സഖ്യത്തെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി നിശിതമായി വിമർശിച്ചു ബുധനാഴ്ചത്തെ കോടതി വിധി സിദ്ധാന്തത്തിനേറ്റ അവസാനത്തെ പ്രഹരമാണെന്നും ശ്രീ ജെയ്റ്റ്ലി ബ്ലോഗിൽ കുറിച്ചു

വജ്ര വ്യാപാരി നീരവ് മോദിയുടെ അക്ക്സ്റ്റോടെ പ്രതിപക്ഷത്തിന്റെ കള്ളത്തരം വീണ്ടും പുറത്തൂർയിരിക്കുകയാണ് ഇന്ത്യയെയും ഇവിടുത്തെ സ്ഥാപനങ്ങളെയും ചതിക്കുന്നവർക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് ഇ്തോടെ രാജ്യത്തിന് ഒന്നുകൂടി ഉറപ്പായതായി ധനമന്ത്രി പറഞ്ഞു

ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല

രണ്ട് ഗ്രാമീണരെ ബന്ദിയാക്കിയിരുന്ന ഭീകരനെയാണ് സുരക്ഷാ സേന വധിച്ചത്

ഇതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്

മാർ അംഗീകരിച്ചാൽ യൂറോപ്യൻ യൂണിയൻ വിടാനുളള തീയ്ക്കി വൈകിപ്പിക്കാനുളള ബ്രിട്ടന്റെ അപേക്ഷയിൽ അനുമത്യി ന്ത്ൽകൂവെന്ന് യൂറോപ്യൻ കൌൺസിൽപ്രസിഡന്റ് ഉഡാണാൾഡ് ടസ്ക് ബ്രസൽസിൽ വ്യാഴാഴ്ച നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ സമ്മേളനത്തിൽ ബ്രെക്സിറ്റ് വൈകിപ്പിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയ് അനുമതി തേടുന്നതിനെക്കുറിച്ചുളള പ്രതികരണത്തിലാണ് ടസ്ക് ഇക്കാര്യം പറഞ്ഞത്

ഈ വിജയംതാരങ്ങളുടെ മാതാപിതാക്കൾക്കും രാജ്യത്തിനും സമർപ്പിക്കുന്നതായി ഇന്ത്യയുടെ പ്രതിനിധി സംഘ തലവൻ വിക്ടർ ആർ വാസ് പറഞ്ഞു മെഡലുകളുടെ എണ്ണത്തിൽ ഇന്ത്യയ്ക്ക് റെക്കാർഡ് നേട്ടം സ്വന്തമാക്കാനായി

ഇന്ത്യയ്ക്ക് ഇത് അഭിമാനത്തിന്റെ ദിവസമാണെന്ന് ശ്രീ നരേന്ദ്ര മോദി ട്വിറ്ററിൽ കുറിച്ചു മികച്ച വിജയം നേടാൻ താരങ്ങളെപ്രാപ്തരാക്കിയ അവരുടെ കൂട്ടു്ർബങ്ങളെയും പരിശീലകരേയും പ്രധാനമന്ത്രി അഭിന്ദ്ദന്ം അറിയിച്ചു

അനുവദനീയമായതിലും അധികം ആളുകൾ ഉണ്ടായതാണ് ബോട്ട് മുങ്ങാൻ ഇടയായത്

സംഭവത്തിൽ ഉത്തരവാദികളായവരെ കണ്ടെത്താൻത്വരിതാന്വേഷണത്തിനു ഉത്തരവിട്ടുണ്ട്

ഇന്നലെ അഞ്ച് മൃത ശരീരങ്ങൾ കൂടി കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി ഉത്തരവിട്ടു

ഹോളി ആഘോഷത്തെ തുടർന്ന് മുംബൈയ്ക്ക് സമീപം പൽഗർ ജില്ലയിലെ കലംബ് ബീച്ചിൽ കുളിക്കുകയായിരുന്നവരാണ് അപ്പികടത്തിൽപ്പെട്ടതെന്ന് പൊലീസ് പറഞ്ഞു